നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു ഇന്ന് ന്യൂഡൽഹിയിൽ സർവ്വകക്ഷി യോഗം വിളിച്ചു

ന് ഇന്ത്യ തദ്ദേശീയമായി വിക്സിപ്പിച്ച അഗ്നി രണ്ട് മധ്യ ദൂര ബാലിസ്റ്റിക് മിസൈല്പിന്റെ രാത്രികാല പരീക്ഷണം വിജയകരം

കേരളത്തിൽ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി

ഇന്ത്യയ്ക്ക് ഒൻപത് മെഡലുകൾ

വെങ്കയ്യ നായിഡു വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർല വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്നു പാർലമെന്റ് നടപടികളുടെ സുഗമമായ നടത്തിപ്പിൽ എല്ലാ കക്ഷികളിലേയും അംഗങ്ങൾ സഹകരിക്കാമെന്ന് ഉറപ്പു നല്കിയിട്ടുണ്ടെന്ന് ശ്രീ

പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഏതു വിഷയവും ഉപദേശക സമിതിയുടെ ചർച്ചകൾക്ക് ശേഷം അവതരിപ്പിക്കാൻ അനുവാദം നല്കുമെന്ന് ലോക്സഭാ സ്പീക്കർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്പിർല്ക്മെന്ററി കാര്യമന്ത്രി പ്രഹ്ളാദ് പട്ടേൽ കോൺഗ്രസ് നേതാവ് അധീർരഞ്ജൻ ചൌധരി ഡിഎംകെ നേതാവ് ടി

വിവിധ രാഷ്ട്രീയപാർട്ടികളിലെ നേതാക്കളുമായും പാർലമെന്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ച വളരെ മികച്ചതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ശൈത്യകാല സമ്മേളനത്തിൽ ജനക്ഷേമത്തിലും വികസനത്തിലും ഉൌന്നിയ ചർച്ചകൾ ഫലപ്രദമായി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം ടിറ്റ് ചെയ്തു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ ദേശീയ ആദിവാസി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജെ പി അധികാരത്തിൽ വന്നപ്പോഴെല്ലാം ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു ആദിവാസികൾ കൂടുതലുള്ള ഇടങ്ങളിൽ ഗവൺമെന്റ് മാതൃക സ്കൂളുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും ശ്രീ ഷാ വൃക്തമാക്കി

ടി ഫോമുകൾ ഫയൽ ചെയ്യൂന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്കകളെകുറിച്ച് അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒർഫ് ചാർട്ടേർഡ് ആക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ കോൺഫെഡറേഷ്ഠൻ ഓഫ് ആൾ ഇന്ത്യ ട്രേഡേഴ്സ് ലഘു ഉദ്യോഗ് ഭാരതി എന്നിവ്രുമായി ശ്രീമതി സീതാരാമൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ചർച്ച ചെയ്തു അടുത്ത സാമ്പത്തിക വർഷം മുതൽ പുതിയ ജി

ടി റിട്ടേൺ സംവിധാനം കൊണ്ടുവരാൻ ദേശീയ തലത്തിൽ ചർച്ച നടത്താൻ ധനമന്ത്രി നിർദ്ദേശിച്ചിരുന്നു

ഹർഷ്വർദ്ധൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ലക്ഷ്യം രാജ്യത്തെ ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയാണ് പ്രഥമ പരിഗണന ഈ ലക്ഷൃം കൈവരിക്കുന്നതിനായി എല്ലാ ജനങ്ങളുടെയും സഹകരണം അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചതിനു ശേഷം പത്ത് കോടിയിലധികം ശൌചാലയങ്ങൾ നീർമ്മിച്ചതായും അദ്ദേഹം പറഞ്ഞു സ്ച്ഛ് ഭാരത് പദ്ധതിയിലൂടെ മലേറിയ അതിസാരം എന്നിവ മൂലമള്ള മരണനിരക്ക് ഗണ്യമായി ്കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഡോ

മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേക നടപടികളാണ് കൈക്കൊള്ളുന്നത് ഇതിനായി രാജൃത്ത് എം ബി ബി

ഒൻപത് സെഷനുകളായി നടത്തുന്ന ഉച്ചകോടിയിൽ കേരളം മധ്യപ്രദേശ് മേഘാലയ ഒഡീഷ മണിപ്പൂർ മഹാരാഷ്ട്ര ഹരിയാന തെലങ്കാന ഹിമാചൽപ്രദേശ് ബീഹാർ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിയ വിജയകരമായ പദ്ധതികളെ കുറിച്ച് ചർച്ചകളുണ്ടാകും ന്യൂസ് ഡസ്ക് ആകാശവാണി

കൃഷിനാശം മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് നഷ്ടപരിഹാരവും ഗവർണർ പ്രഖ്യാപിച്ചു

ഫ്രഞ്ച് ദിനപത്രം ലി മോൻഡെയ്ക്ക് പാരീസിൽ നല്കിയ അഭിമുഖത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്താമാബാദ് ന്യൂഡൽഹിയുമായി നല്ല സൌഹൃദം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാവൂദ് ഇബ്രാഹിം ഹാഫിസ് സെയ്ദ് തുടങ്ങിയ ഭീകരരെ ഇന്തൃക്ക് കൈമാറാൻ തയ്യാറാകണമെന്നും ശ്രീ ജയ്ശങ്കർ അഭിമുഖത്തിൽ പറഞ്ഞു

സുധീർ നമ്പൂതിരി ശ്രീകോവിൽ നട തുറന്നു

ഭക്തജനത്തിരക്കാണ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് ഇന്ന് യോഗം ചേരും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്

കപ്പൽ നിർമ്മാണ കേന്ദ്രമായി മാറാനുള്ള ഗോവയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കപ്പൽ നിർമ്മാണ മേഖലയുടെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വൃവസായ മേഖലയുടെയും വികസനം എന്നതാണ് കൂട്ടായ്മയുടെ ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു

മുൻനിര ഷൂട്ടിംങ് താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്